ഇ ബഹറിൻ എന്നി വിടങ്ങളിൽ സന്ദർശനത്തിനായി വെള്ളിയാഴ്ച യാത്ര തിരിക്കും

വ്യാഴാഴ്ച വരെ കനത്ത ്രമഴയ്ക്ക് സാധ്യതയില്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓണക്കാലത്ത് ഗൾഫ് രാജ്യങ്ങളിൽനിന്ന് കേരളത്തി ലേക്ക് കൂടുതൽ വിമാന സർവ്വീസുകൾ ആരംഭിക്കാൻ നടപടിയെടുക്കുമെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ചെക്ക് റിപ്പബ്ലിക് അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യയുടെ മുഹമ്മദ് അനസിനും ഹിമ ദാസിനും സ്വർണ്ണം ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് സ്വിറ്റ്സർലന്റിൽ ഇന്ന് തുടക്കം

ഇ ബഹറിൻ എന്നിവിട ങ്ങളിൽ മൂന്നുദിവസത്തെ സന്ദർശനത്തിനായി വെള്ളിയാഴ്ച യാത്ര തിരിക്കും വെള്ളി ശനി ദിവസങ്ങളിൽ യു

ഇയിലും ശനി ഞായർ ദിവസങ്ങളിൽ ബഹറിനിലും അദ്ദേഹം സന്ദർശനം നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹി യിൽ അറിയിച്ചു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ പർമോന്നത ബഹുമ തിയായ ഓർഡർ ഓഫ് സായദ് നരേന്ദ്രമോദിക്ക് സമ്മാനി ക്കും അബുദാബി രാജകുമാരൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹിയാനുമായി ഉഭയകക്ഷി മേഖലാ വിഷയങ്ങളും അന്താരാഷ്ട്ര കാര്യങ്ങളും പ്രധാനമന്ത്രി ചർച്ച ചെയ്യും ബഹറിനിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിഫ ബിൻ സൽമാൻ അൽഖാലിഫയുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും മനാമയിൽ ശ്രീകൃഷ്ണക്ഷേത്രത്തിന്റെ പുനർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നരേന്ദ്രമോദി തുടക്കം കുറി ക്കും

ആദ്യമായാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം പൂർണ്ണമായി വിദേശ ഭാഷയിൽ പ്രക്ഷേപണം ചെയ്യു ന്നത് ഇതുവരെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രമാണ് പ്രക്ഷേപണം ചെയ്തിരുന്നത് അറബി ചൈനീസ് ഫ്രഞ്ച് റഷ്യൻ ഇംഗ്ലീഷ് തായ് തുടങ്ങിയ ഭാഷകളിലേക്കാണ് പ്രധാ നമന്ത്രിയുടെ പ്രസംഗം മൊഴിമാറ്റം നടത്തുന്നത് വയനാട് മേപ്പാടിയിലെ പുത്തുമലയിൽ ഉരുൾപൊട്ടി കാണാതായവരെ കണ്ടെത്തുന്നതിന് റഡാറുകൾ ഉപയോഗിച്ച് ഇന്ന് തെരച്ചിൽ നടത്തും മലപ്പുറം കവളപ്പാറയിൽ റഡാർ ഉപയോഗിച്ച് ഇന്നലെ തെരച്ചിൽ നടത്തിയ ഹൈദരാബാദ് നാഷണൽ ജിയോ ഫിസിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആറംഗ സംഘമാണ് തെരച്ചിലിനായി പുത്തുമലയിലെത്തുക ഇന്നലെ ഒരു മൃതദേഹം കണ്ടെത്തിയ സൂചിപ്പാറ ഉൾപ്പെടെ ഭാഗങ്ങ ളിൽ സംഘം തെരച്ചിൽ നടത്തും

ഇതോടൊപ്പം മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ ഇന്നും തുട രും അതേസമയം കവളപ്പാറയിൽ റഡാർ ഉപയോഗിച്ച് ഇന്നലെ നടത്തിയ തെരച്ചിൽ ഫലം കണ്ടില്ല

മണ്ണ് ചളി ക്കുളമായി കിടക്കുന്നത് തടസ്സമാണെന്നും അദ്ദേഹം അറിയി ച്ചു മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെ നടത്തിയ തെര ച്ചിലിലാണ് കവളപ്പാറയിൽ ഇന്നലെ ആറ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്

മേപ്പാടി സൂചിപ്പാറയിൽ ഇന്നലെ കണ്ടെടുത്ത മൃതദേഹത്തിന്റെ ഡി

എ പരിശോധന നടത്താൻ തീരുമാ നിച്ചു കാണാതായ പൊള്ളാച്ചി ്ര്യദേശിയുടേതാണ് മൃതദേഹ മെന്ന് ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ചതിനെത്തുടർന്നാണിത് അണ്ണയ്യൻ എന്നയാളുടേതാണ് മൃതദേഹമെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞതിനെത്തുടർന്ന് നേരത്തെ മൃതദേഹം അവർക്ക് വിട്ടു കൊടുത്തിരുന്നു സംശയത്തെത്തുടർന്ന് സംസ്കാര ചടങ്ങുകൾ മാറ്റി മൃതദേഹം സ്ഥകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്

നെയ്കുപ്പ കോളനിയും പേരൂർ അമ്പലക്കോളനിയും വെള്ള പ്പൊക്ക ഭീഷണിയിലാണ് പ്രളയജലം കയറിയിറങ്ങി മലിനമാക്കിയ വയനാടിനെ ജില്ലയ്ക്കകത്തും പുറത്തും നിന്നെത്തിയ സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് വൃത്തിയാക്കി

എസ് എസ് എൻ സി

മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ശുചീകരണ യജ്ഞത്തിന് തുടക്കം കുറിച്ചു കണ്ണൂർ ജില്ലയിലെ ഉളിയ്ക്കലിനടുത്ത തേർമലയിൽ ഭൂമി വിണ്ടുകീറുന്നത് പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നു ഭൂമി യ്ക്കടിയിൽ സോയിൽ പൈപ്പിംഗ് പ്രതിഭാസം നിലനിൽക്കു ന്നുണ്ടെന്ന് സ്ഥലം സന്ദർശിച്ച മൈനിംഗ് ആന്റ് ജിയോളജി വകുപ്പധികൃതർ അഭിപ്രായപ്പെട്ടിരുന്നു മഴ ശക്തിപ്പെടുകയാണെങ്കിൽ അടിവാരത്ത് താമസിക്കു ന്നവർ സുരക്ഷിത സ്ഥലത്തേക്ക് മാറണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്

സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ കനത്ത് മഴയ്ക്ക് സാധ്യത യില്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് അറിയിച്ചു ഇന്നലെ ചില സ്ഥലങ്ങളിൽ ചെറിയ തോതിൽ മഴ ലഭിച്ചു സംസ്ഥാനത്ത് കാലവർഷത്തിൽ ഇതുവരെ ഒരു ശതമാനം മഴക്കുറവാണ് രേഖപ്പെടുത്തിയത്

പ്രളയത്തിൽ നിന്ന് കരകയറാൻ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യുന്ന ഗവൺമെന്റിനെതിരെ സാമൂഹ്യമാധ്യമങ്ങൾ വഴി കുപ്രചരണം നടത്തുന്നവരെ ഒറ്റപ്പെടുത്തണമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു

ആരോഗ്യ വിദ്യാഭ്യാസ ഭവനനിർമാണ കാർഷിക മേഖലകൾക്ക് മുഖ്യ പരിഗണന നൽകുന്ന വികസനമാണ് ഗവൺമെന്റ് നടപ്പിലാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഓണക്കാലത്തെ തിരക്ക് കണക്കിലെടുത്ത് ഗൾഫ് രാജ്യങ്ങ ളിൽനിന്ന് കേരളത്തിലേക്ക് കൂടുതൽ വിമാന്യ സർവ്വീസുകൾ നടത്താൻ കേന്ദ്ര ഗവൺമെന്റ് നടപടിയെടുക്കുമെന്ന് വിദേശ കാര്യ സഹമന്ത്രി വി

ഇത് സംബന്ധിച്ച് കേന്ദ്ര വ്യോമയാന മന്ത്രിയിൽനിന്ന് അറിയിപ്പ് ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു കൊച്ചിയിൽ പ്രവാസി ലീഗൽ സെൽ പത്താം വാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേ ഹം ഉത്സവകാലത്ത് വിമാന ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ വർദ്ധി ക്കുന്ന പ്രശ്നം നേരിടുന്നതിന് മറ്റ് മാർഗ്ഗങ്ങൾ വ്യോമയാന മന്ത്രാലയം പരിശോധിക്കുന്നുണ്ടെന്ന് മുരളീധരൻ പറഞ്ഞു സംസ്ഥാനത്തു നിന്ന് യൂറോപ്പിലേക്ക് നേരിട്ട് വിമാന സർവ്വീസ് വേണമെന്ന ആവശ്യം വ്യോമയാന മന്ത്രി അംഗീക രിച്ചതായും അദ്ദേഹം അറിയിച്ചു ചെക്ക് റിപ്പബ്ലിക് അത്ലറ്റിക് മീറ്റിൽ പുരുഷ വനിതാ വിഭാ ഗത്തിൽ ഇന്ത്യൻ സ്പ്രിന്റർമാരായ മുഹമ്മദ് അനസിനും ഹിമ ദാസിനും സ്വർണ്ണം

കെ വിസ്മയ വെള്ളി നേടി ലോക ബാഡ്മിന്റൺ ചാമ്പൃൻഷിപ്പിന് ഇന്ന് തുടക്കം

വി സിന്ധുവും സ്സൈന നെഹ്വാളും ഉൾപ്പെടുന്ന ഇന്ത്യൻ നിര പ്രതീക്ഷയോടെയാണ് ഇറങ്ങുന്ന ത് പുരുഷന്മാരിൽ മുൻലോക ഒന്നാം നമ്പർ കിഡംബി ശ്രീകാ ന്ത് മലയാളി താരം എച്ച് എസ് പ്രണോയ് സായ് പ്രണീത് എന്നിവരടങ്ങുന്ന ടീം പങ്കെടുക്കും കൊൽക്കത്തിൽ ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ ഗോകുലം കേരളം സെമിയിലെത്തി അവസാന ഗ്രൂപ്പ് മത്സര ത്തിൽ ഇന്നലെ മണിപ്പൂരി ക്ലബ്ബായ ട്രാവു എഫ്

മറ്റന്നാൾ സെമിയിൽ കരുത്തരായ ഈസ്റ്റ് ബംഗാളാണ് ഗോകുലത്തിന്റെ എതിരാളി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോയവർ കരി പ്പൂരിൽ തിരിച്ചെത്തിത്തുടങ്ങി

മുഹ മ്മദ് ഫൈസി എം

എമാരായ ടി വി ഇബ്രാഹിം കാരാട്ട് റസാഖ് തുട ങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു പ്രളയക്കെടുതിയിൽ ദുരിതത്തിലായ നാടിന് സഹായം കൈമാറിയാണ് ഹാജിമാർ മടങ്ങുന്നത്

അടുത്ത മാസം മൂന്നിനാണ് ഹാജിമാരുടെ അവസാന സംഘം എത്തു ക

ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ശ്രീകൃഷ്ണജയന്തി ബാലദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് പതാക ദിനാചരണം നടന്നു

ഗോ സംരക്ഷണത്തിന്റെ സന്ദേശവുമായി ആയിരം കേന്ദ്രങ്ങളിൽ ഗോപൂജയും നടന്നു വെള്ളിയാഴ്ചയാണ് ശ്രീകൃഷ്ണജയന്തി വളപട്ടണം പുഴയിലെ ജലനിരപ്പ് ഉയർന്നതിനെത്തുടർന്ന് തടസ്സപ്പെട്ടിരുന്ന കണ്ണൂർ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലെ പതിവ് ചടങ്ങുകൾ പുനരാരംഭിച്ചു പത്തു ദിവസത്തിനുശേഷം ഇന്നലെ തിരുവപ്പന കെട്ടിയാടി ഭാരത് സ്കൌട്ട്സ് ആന്റ് ഗൈഡ്സ് സംസ്ഥാന ട്രെയിനറും തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ല ട്രെയിനിംഗ് കമ്മീഷണ്ണറുമായ എസ് ഡി പ്രമോദ് നിര്യാതനായി

ജലനിരപ്പ് താഴാത്തതിനാൽ കുട്ടനാട് താലൂക്കിൽ ഇന്നും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപ നങ്ങൾക്ക് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു കുട്ടനാട്ടിൽ മഴയെത്തുടർന്ന് തടസ്സപ്പെട്ട ഗതാഗതവും പുനഃ സ്ഥാപിച്ചിട്ടില്ല കുട്ടനാട്ടിലെ മഴക്കെടുതി ബാധിത മേഖലകളിൽ മന്ത്രി വി എസ് സുനിൽകുമാർ ഇന്ന് രാവിലെ സന്ദർശനം നട ത്തും മഹാത്മാ ഗാന്ധി സർവ്വകലാശാല ഇന്നും മറ്റന്നാളും നട ത്താനിരുന്നു എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചതായി പരീക്ഷാ കൺട്രോളർ അറിയിച്ചു പുതുക്കിയ തീയതി പിന്നീട് അറിയി ക്കും പലക്കാട് ജില്ലയിലെ എല്ലാ ദുരിതാശ്വാസ ക്യാമ്പുകളും പിരിച്ചുവിട്ടു

അതിനിടെ പയ്യന്നൂർ താലൂക്കിലെ പുളിങ്ങോം വില്ലേ ജിൽപ്പെട്ട വയലായിയിൽ കാട്ടാനയുടെ ഭീഷണിയെത്തുടർന്ന് ഒരു കുടംബത്തെ മാറ്റിപ്പാർപ്പിച്ചു ഇടുക്കി നെടുങ്കണ്ടം താന്നിമൂട് കല്ലാർ റോഡിൽ വൻമരം കടപുഴകി വീണു പാറകളും അടർന്നു വീണതിനാൽ മണ്ണിടിച്ചിൽ സാധ്യത പരിഗണിച്ച് ഇന്നു രാവിലെവരെ ഇതുവഴിയുള്ള ഗതാഗതത്തിന് നിരോധനമേർപ്പെടുത്തി മൂന്നാർ സംസ്ഥാന പാതയുടെ ഭാഗമാണ് താന്നിമൂട് കല്ലാർ റോഡ്